എസ് അരിഹന്ത് മുങ്ങിക്ക പ്പലിന്റെ നിരീക്ഷണ സഞ്ചാരം പൂർത്തിയായി

എസ് അരിഹന്ത് നിരീക്ഷണ സഞ്ചാരം പൂർത്തിയാക്കി അരിഹന്തിന്റെ വിജയ ശില്പികളെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു കര നാവിക വ്യോമ മാർഗ്ഗങ്ങളിൽ ആണവ മിസൈൽ വിക്ഷേ പണത്തിന് കരുത്ത് നേടിയ രാജൃങ്ങളുടെ പട്ടികയിൽ അന്തർവാഹിനിയുടെ പരീക്ഷണ സഞ്ചാരത്തോടെ ഇന്തൃയും സ്ഥാനംനേടി ശക്തമായ ഇന്തൃ ആഗോള സമാധാനത്തിന് എന്ന ലക്ഷ്യത്തോടെയാണ് അരിഹന്ത് നിരീക്ഷണ സഞ്ചാരം പൂർത്തിയാക്കിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹി യിൽ പറഞ്ഞു

ഇന്നലെ വൈകീട്ട് ചിത്തിര ആട്ട വിശേഷത്തിനായി സന്നിധാനത്ത് നട തുറന്നിരുന്നു ഇന്ന് പുലർച്ചെ സന്നിധാനത്ത് നിർമ്മാലൃത്തിനും അഭിഷേകത്തിനും ശേഷം നെയ്യഭിഷേ കവും ആരംഭിച്ചു

ഗണപതി ഹോമവും ഉഷപൂജയും ഉച്ചപൂജയും ഉൾപ്പെടെ പതിവ് പൂജകളും കലാശാഭിഷേകം പടിപൂജ പുഷ്പാഭിഷേകം എന്നിവയും ചിത്തിര ആട്ട തിരുനാൾ ദിവസം ശബരിമലയിൽ ഉണ്ടാകും

ശബരിമലയിലെയും മാളികപ്പുറത്തെയും പുതിയ മേൽശാന്തിമാർ അന്ന് സ്ഥാനമേൽക്കും പുതിയ മേൽശാന്തിമാരായിരിക്കും പിറ്റേന്ന് വൃശ്ചികം ഒന്നിന് നട് തുറക്കുന്നത് ദർവ്വെട്ടറ ശബരിമല ദർശനത്തിന് ഭർത്താവിനും രണ്ട് കുട്ടികൾക്കുമൊപ്പം പമ്പ യിലെത്തിയ യുവതി മല കയറാതെ മടങ്ങി ചേർത്തല സ്വദേശി അഞ്ജു വിനെയും കൂടുംബത്തെയും പൊലീസ് സംരക്ഷണത്തോടെ ചേർത്തലയി ലേക്ക് തിരിച്ചയച്ചു പൊലീസുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഇവരെ നാട്ടിലേക്കയച്ചത്

ജെ പി സംസ്ഥാന പ്രസിഡന്റ് ഗൂഢാലോചന നടത്തിയ സംഭവം അതീവ ഗുരുതരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ കുറ്റപ്പെടുത്തി ശബരിമലയെ കളങ്കപ്പെടുത്തു ന്നതാണ് ഈ നീക്കമെന്നും ഇക്കാര്യത്തിൽ തന്ത്രി വിശദീകരണം നൽകണ മെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കണ്ണൂരിൽ എൽ ഡി

ജെ പി ഗൂഢശ്രമം നടത്തുകയാ ണെന്ന ആരോപണം സാധൂകരിക്കുന്നതാണ് പി എസ് ശ്രീധരൻപിള്ളയുടെ കോഴിക്കോട് യുവമോർച്ച യോഗത്തിലെ പ്രസംഗമെന്ന് കെ

സി

ജെ പിയുടെ ലക്ഷ്യ മെന്ന് പി എസ് ശ്രീധരൻപിള്ളയുടെ വാക്കുകളിലൂടെ വ്യക്തമായെന്ന് പ്രതി പക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു വിശ്വാസികൾ ആചാരലംഘന ത്തിൽ ദുഃഖിക്കുന്ന സമയത്ത് ബി ജെ പിക്ക് സുവർണാവസരമെന്ന ശ്രീധ രൻപിള്ളയുടെ പരാമർശം അവരുടെ തനിനിറം പുറത്തുകൊണ്ടുവന്നിരിക്കു കയാണെന്ന് ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു രദേഷ്ടെടു ശബരിമലയിലേക്ക് യുവതികളെ പ്രവേശിപ്പിക്ക്ണ്ട ജോലി സി

എം ഏറ്റെടുത്തിട്ടില്ലെന്ന് മന്ത്രി ഡോക്ടർ തോമസ് ഐസക്ക് ആലപ്പുഴ യിൽ വ്യക്തമാക്കി കോടതി വിധി നടപ്പാക്കുന്നതുതടയാൻ തന്ത്രിയെ പ്രേരി പ്പിച്ചുവെന്ന പി എസ് ശ്രീധരൻപിള്ളയുടെ വെളിപ്പെടുത്തൽ നിയമവാഴ്ച അട്ടിമറിക്കാൻ ബി ജെ പി നടത്തുന്ന ശ്രമത്തിന് തെളിവാണെന്നും മന്ത്രി പറഞ്ഞു രമട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളിൽ കേരള പുനർ നിർമ്മാണ വുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ പഠന റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉച്ചകഴിഞ്ഞ് കോഴിക്കോട്ട് പ്രകാശനം ചെയ്യും മൂന്ന് ജില്ലക ളിലെയും ദുരന്ത മേഖലകൾ സന്ദർശിച്ചാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃ ത്വത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കിയത്

എ കോഴിക്കോട് ചാപ്റ്റർ ലെൻസ്ഫെഡ് എൻ ഐ ടി കോഴിക്കോട് വി ഫോർ വയനാട് എന്നിവയ ടക്കം സ്ഥാപനങ്ങൾ പഠനത്തിൽ പങ്കെടുത്തു രദ്ദേഷ്ടങ കണ്ണൂർ ്വിമാനത്താവളത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ പുതിയ വൃവസായ സംരംഭങ്ങൾ ആരംഭിക്കുമെന്ന് മന്ത്രി ഇ പി ജയരാജൻ അറി യിച്ചു പായം പഞ്ചായത്തിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് കം മൾട്ടിപ്പക്സ് തിയേറ്ററിന് തറക്കല്പിടുകയായിരുന്നു മന്ത്രി

വൃവസായികൾ ഭൂമി കണ്ടെത്തിയാൽ ഉടമകളുമായി സംസാരിക്കാനും കിൻഫ്രയുടെ ഭൂമി വൃവസായങ്ങൾക്ക് നൽകാനും തയ്യാറാണെന്ന് മന്ത്രി അറിയിച്ചു

കെ ശൈലജ പറഞ്ഞു ദേശീയ ആയുർവേദ ദിനാഘോഷം സംസ്ഥാനതല പരിപാടി കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ഇവയിൽ തെരഞ്ഞെടുക്കപ്പെട്ടവയെ കുടുംബാരോഗൃ കേന്ദ്രമാക്കി ഉയർത്തും ലോകത്തിന്റെ പലഭാഗത്തെയും പാരമ്പര്യ ചികിത്സകരെ പങ്കെടുപ്പിച്ച് ജനുവരിയിൽ ഇന്റർനാഷണൽ ആയുഷ് കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു ദർവ്വട്ടെഴ കർണാടകയിൽ മൂന്ന് ലോക്സഭ മണ്ഡലങ്ങളിലെയും രണ്ട് നിയമസഭ മണ്ഡലങ്ങളിലെയും ഉപതെരഞ്ഞെടുപ്പിൻെറ വോട്ടെണ്ണൽ ഇന്ന് നടക്കും അഞ്ചിടത്തും ശനിയാഴ്ചയായിരുന്നു വോട്ടെടുപ്പ് കോൺഗ്രസും ജെ ഡി എസും സഖ്യമായാണ് ജനവിധി തേടിയത് രാവിലെ എട്ടിന് വോട്ടെണ്ണൽ ആരംഭിക്കും ഉച്ചയോടെ ഫലമറിയാം

തിന്മയിൽ നിന്ന് നന്മയിലേക്കും ഇരുളിൽ നിന്ന് വെളി ച്ചത്തിലേക്കും ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുന്ന പ്രതീകാത്മകമായ ആഘോഷവേളയാണ് ദീപാവലി പ്രകാശമെത്തുന്നതോടെ ഇരുളില്ലാതാ കുന്നതുപോലെ അജ്ഞതയിൽ നിന്ന് ആത്മവെളിച്ചത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നതാണ് ദീപാവലിയുടെ സങ്കല്പങ്ങളും ഐതിഹൃങ്ങളും ജാതി മത ഭേദമില്ലാതെ ദീപങ്ങൾ തെളിയിച്ചും മധുരം പങ്കുവെച്ചുമാണ് ദീപാവലി ആഘോഷിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്കും ലോകത്ത് പലയിടങ്ങളി ലായി കഴിയുന്ന മലയാളികൾക്കും ഗവർണർ പി സദാശിവം ദീപാവലി ആശം സകൾ നേർന്നു

സിയോട് ഒന്നിനെതിരെ രണ്ട് ഗോളിനാ യിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ പരാജയം ലീഗിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ തോൽവി യാണിത്

കേരളത്തിനാണ് രണ്ടാംസ്ഥാനം

വൈകീട്ട് ഏഴിനാണ് മത്സരം

എസ് സൂനിൽകുമാർ അറിയിച്ചു കേന്ദ്രം കർഷകർക്ക് നൽകുന്ന പലിശ സബ്സിഡി അവർക്ക് തന്നെ ലഭ്യമാ ക്കുമെന്നും അദ്ദേഹം എറണാകുളം കാഞ്ഞിരമറ്റത്ത് പറഞ്ഞു ആഗ്രോമാർട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പൊക്കാളി പാടശേഖരങ്ങളിൽ നെൽകൃഷിയില്ലാതെ മത്സ്യകൃഷിക്ക് മാത്രം ഗവൺമെന്റ് ലൈസൻസ് നൽകില്ലെന്ന് സുനിൽകുമാർ വ്യക്തമാക്കി ഏഴിക്കരയിൽ പുത്തൻതോട് കുഴുവേലിതോട് പുറംബണ്ട് നിർമ്മാണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി രുട്ട്ട്ട്ട്ട്ട്ട്ട്ട ജലവിഭവ വകൂപ്പിന്റെ സ്ഥലങ്ങളിലെ കൈയ്യേറ്റം ഒഴിപ്പിച്ച് ഗവൺമെന്റ് ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടികൾ ശക്തമാക്കുന്നതിന് മന്ത്രി മാത്യു ടി തോമസ് നിർദ്ദേശം നൽകി കാക്കനാട്ട് ഭൂജലവകുപ്പിന്റെ പുതിയ ഓഫീസ് സമുച്ചയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വരാപ്പുഴ പഞ്ചായത്തിലെ ശുദ്ധജല വിതരണ ശൃംഖലയുടെ പുനരുദ്ധാരണ പ്രവൃത്തിയും മന്ത്രി ഉദ്ഘാ ടനം ചെയ്തു ദർവ്വെടെട കോഴിക്കോട് മെഡിക്കൽ കോളജിലെ ഡിജിറ്റൽ റേഡിയോഗ്രഫി സംവി ധാനവും സ്ട്രോക്ക് യൂണിറ്റും ഇന്ന് ഉദ്ഘാടനം ചെയ്യും മന്ത്രിമാരായ കെ കെ ശൈലജയും ടി പി രാമകൃഷ്ണനും ഉച്ചകഴിഞ്ഞ് മെഡിക്കൽ കോളജിലേ ആധുനിക സൌകര്യങ്ങൾ ജനങ്ങൾക്ക് തുറന്നുകൊടുക്കും മലാപ്പറമ്പിൽ റീജ്യണൽ വാക്സിൻ സ്റ്റോറും മന്ത്രി കെ കെ ശൈലജ ഉദ്ഘാടനം ചെയ്യും

ഇന്നലെ രാത്രി പത്തരയോടെയായിരുന്നു അപകടം രദ്ദമ്പ്പെട്ടറ സംസ്ഥാനത്തെ പ്രളയക്കെടുതിയിൽ നാശനഷ്ടങ്ങളുണ്ടായ വീടുക ളുടെ ഫോട്ടോ അടക്കം വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി അന്തിമ പട്ടിക പ്രസി ദ്ധീകരിച്ചതായി അധികൃതർ അറിയിച്ചു റീബിൽഡ് കേരള ആപ്തിക്കേഷൻ ഉപയോഗിച്ചാണ് സർവേ പൂർത്തീകരിച്ചത്

തദ്ദേശ സ്ഥാപനങ്ങളുടെ നോട്ടീസ് ബോർഡിലും പട്ടിക പ്രദർശിപ്പിക്കും വാർഡ് മെമ്പർമാർക്ക് ഇതിന്റെ കോപ്പി കളും വിതരണം ചെയ്യും രദ്ദേഷ്ടങ കോവളത്തെ ഹോട്ടൽ മാനേജ്മെന്റ് ആന്റ് കാറ്ററിംഗ് ടെക്നോളജിയിലെ രണ്ടാംവർഷ വിദ്യാർത്ഥി സ്വർണേന്ദു മുഖർജി ആത്മഹത്യ ചെയ്ത സംഭവ ത്തിൽ സംസ്ഥാന യുവജന കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു ജില്ലാ പൊലീസ് മേധാവിയിൽ നിന്നും പ്രിൻസിപ്പലിൽ നിന്നും കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പുറപ്പെട്ടത്ത കോഴിക്കോട് സൌത്ത് ബീച്ച് റോഡിലെ അനധികൃത ലോറി പാർക്കിംഗ് അവസാനിപ്പിക്കാൻ ജനങ്ങൾക്കൊപ്പം പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുമെന്ന് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ അറിയിച്ചു നഗരത്തിനകത്തുതന്നെ മറ്റ് പല യിടത്തും ലോറി പാർക്കിംഗിന് സൌകർ്യങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടും സൌത്ത് ബീച്ചിലേ പാർക്ക് ചെയ്യൂവെന്ന പിടിവാശി അംഗീകരിക്കാനാവില്ലെന്ന് ബീച്ചിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മേയർ അറിയിച്ചു